ഒരുകോടിയോളം കർഷകർക്ക് നിധിയിൽ നിന്ന് ആദ്യ ഗഡുവായ രണ്ടായിരം രൂപ ഇന്നുതന്നെ അക്കൌണ്ടുകളിലേക്ക് കൈമാറുമെന്ന് കൃഷി മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു അടുത്ത രണ്ടുമൂന്ന് ദിവസത്തിനകം ഒരു കോടി കർഷകർക്കുകൂടി ആദൃഗഡു ആനുകൂല്യം കൈമാറും പന്ത്രണ്ട് കോടിയോളം നാമമാത്ര ചെറുകിട കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുടെ ഉടമ കൾക്കാണ് ആനുകൂലൃത്തിന് അർഹത രാജ്യത്തിന് ആഹാരം നൽകുന്ന കഠിനാധാനികളായ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പദ്ധതി യാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു കർഷക ക്ഷേമത്തിലെ പ്രതിബദ്ധതയും പദ്ധതികളുടെ അതിവേഗ നടത്തി പ്പ് തീരുമാനത്തിനും തെളിവാണ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി യെന്നും കുറിപ്പിൽ പറയുന്നു

സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുവേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരെ ആദ രിക്കുന്നതിനുവേണ്ടിയാണ് സ്മാരകം നിർമ്മിച്ചത് ജീവാർപ്പണം ചെയ്ത സൈനികരുടെ പേര് സ്മാരകത്തിന്റെ ഭിത്തിയിൽ രേഖപ്പെടുത്തും

പാലക്കാട് കഞ്ചിക്കോട്ട് തൊഴിൽ വകുപ്പ് നിർമിച്ച ഇതരസംസ്ഥാന തൊഴിലാളികളുടെ പാർപ്പിട സമുച്ചയം അപ്നാഘർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

തൊഴിലാളികളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവാസ് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി സുതാര്യമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിന് മലയാളഭാഷ പഠിപ്പിക്കുന്ന പദ്ധതി എന്നിവ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

വൃവസായ ലൈസൻസുകളും രേഖകളും വേഗത്തിൽ ലഭ്യമാക്കാൻ കെ സിഫ്റ്റ് എന്ന പേരിൽ ഓൺലൈൻ ക്ലിയറൻസ് സംവിധാനം കൊണ്ടുവന്നതായും മന്ത്രി അറിയിച്ചു രുവ്പ്പെടു നരേന്ദ്രമോദി അഞ്ചുവർഷംകൂടി ഭരിച്ചാൽ രാജ്യത്ത് ഭരണഘടനപോലും ഉണ്ടാകില്ലെന്ന് കെ

സി

സിയുടെ ജനമഹായാത്രക്ക് തിരുവല്ലയിൽ ഒരുക്കിയ സ്വീക രണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടുകോടി തൊഴി ലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത മോദി യുവാക്കളെ നേരിടാനാകാതെ ഓടി യൊളിക്കുകയാണെന്നും എൻ

എ ഭരണത്തിൽ രാജ്യത്തെ എല്ലാ മേഖ ലകളും തളർച്ച നേരിടുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ദർവ്വഹിദ് നായർ സർവീസ് സൊസൈറ്റിയെ വീണ്ടും കടന്നാക്രമിച്ച് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഭീഷണിയുടെ സ്വരത്തിൽ ഭയപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് വിലപ്പോകില്ലെന്ന് കെ

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രസ്താവനയിൽ പറഞ്ഞു കേരളത്തിലെ സമുദായ സംഘടനകളോടും അതിന്റെ നേതാക്കളോടും മാട മ്പിത്തരം കാണിക്കുന്നത് സി

ഐ

എസ് നിലപാടു കൾ മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ തുടരുന്നത് തന്നെയാണ്

എസിനെ സി

എമ്മിന്റെയും എൽ ഡി എഫിന്റെയും തടവിലാ ക്കാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതു കൊണ്ടാണ് ഇപ്പോൾ കോടിയേരിയുടെ കുതിര കയറ്റമെന്ന് കൊടിക്കുന്നിൽ ആരോപിച്ചു ഈ നടപടി കോടിയേരി അവസാനിപ്പിക്കണമെന്ന് കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും മൻകി ബാതിനെ തുടർന്ന് പരിപാടിയുടെ മലയാള പരിഭാഷയും കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനപ്രക്ഷേപണവും ഉണ്ടാവും

ഇ ഒ ഡോ

രാജ്യത്തെ പത്ത് കോടിയിലധികം ദരിദ്ര കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രയോജനപ്പെടും

രുള്ളട്ട്ട്ട്ട്ട്ട്ട വനവാസികളെ വനത്തിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന സുപ്രീംകോടതി വിധി ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് സി

വിശ്രമത്തിന് ശേഷം കൃാപ്റ്റൻ വിരാട് കോഹലി ടീമിൽ തിരിച്ചെത്തിയത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർധിപ്പിച്ചിട്ടുണ്ട് വൈകീട്ട് ഏഴിനാണ് മത്സരം

സിയും ജംഷഡ്പൂർ എഫ് സിയും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു ഇതോടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫിൽ കടന്നു ഇന്ന് വൈകീട്ട് ഏഴിന് പൂനെ ഡൽഹിയുമായി ഏറ്റുമുട്ടും

വനിതകളുടെ വിഭാഗത്തിൽ കെഎസ്ഇബി കേരളാ പോലീസിനെ നേരിടും പുരുഷ ഫൈനലിൽ കെഎസ്ഇബിയും ശ്രീ കേരള വർമ കോളജും തമ്മിലെ മത്സരത്തിലെ വിജയികളെ കസ്റ്റംസ് നേരിടും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ക്ഷേത്രകലാ അക്കാദമിക്ക് ആസ്ഥാനം നിർമ്മിച്ച് കൂടുതൽ ക്ഷേത്രകലകൾ അഭ്യസിക്കുന്നതിന് സൌകര്യവുമൊരുക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ക്ഷേത്രകലാ അക്കാദമിക്ക് പുതുജീവൻ നൽകുന്നതിനും ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകുന്നതിനും പുതിയ തലമുറയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

നിയമവിരുദ്ധ മായി സ്ഥാപിക്കുന്നു കുറ്റിവലകൾക്കും ചീനവലകൾക്കും ധനസഹായം നൽകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി

രദ്ദേഷ്ടങ പ്രളയാനന്തരം കാർഷികസമൃദ്ധി തിരിച്ചുപിടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു

ടി ഭട്ടതിരിപ്പാടിന്റെ ഓർമയ്ക്ക് പാലക്കാട് നിർമിക്കുന്ന സാംസ്ക്കാരിക സമുച്ചയത്തിന് മന്ത്രി എ കെ ബാലൻ ഇന്ന് വൈകീട്ട് തറക്കല്ലിടും

എല്ലാ സ് കൂളുകളും നല്ല രീതിയിൽ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടുക്കി പൈനാവ് ഗവൺമെന്റ് യു പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ബി ചെയർമാൻ എൻ

സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങളുടെ കൊല്ലത്തെ വേദിയിൽ കെ എസ്

ബി വാങ്ങിയ ഇലക്ട്രിക്ക് കാറിന്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുറത്ത്ക്കുള് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപ്പിടിത്തവും പുക നിയന്ത്രണ പ്രവർത്തനവും രാവിലെ പുനരാർംഭിക്കും

അഗ്നിശമനസേന പ്രദേ ശത്ത് ജാഗ്രത പുലർത്തി വരികയാണ്

അരിമംഗലത്തിനടുത്ത് ആപ്പറ്റക്കുന്ന് കാഞ്ഞിരമുക്ക് റോഡിന് സമീപത്തെ പെയിന്റ് സീലർ തിന്നർ തുടങ്ങിയവ സൂക്ഷിച്ച ഗോഡൌണാണ് കത്തിയത്

വാഗ്ദാന ലംഘനം നട ത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകളുടെ തടവറയിലാണെന്ന് സമാപന സമ്മേളനത്തിൽ കാനം രാജേന്ദ്രൻ പറഞ്ഞു

സിനിമയെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് തനതായ ശൈലിയി ലൂടെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്